അമേരിക്കയിൽ എത്തി ഇന്ത്യൻ വംശജരായ അമേരിക്കക്കാരെ അഭിസംബോധന ചെയ്യുന്ന ഹൌഡി മോദി സംഗമം ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പങ്കെടുക്കും

ദേശീയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നതെന്ന് മാനവ വിഭവശേഷി മന്ത്രി രമേഷ് പൊഖ്രിയാൽ നിഷാങ്ക്

ഇന്ത്യൻ പവലിയൻ കേന്ദ്ര വാണിജൃ മന്ത്രി പിയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു

വൈകിട്ട് ഏഴിന് കളി ആരംഭിക്കും

ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനു തുടക്കം കുറിച്ച് ഹൌഡി മോഡി പരിപാടി ഇന്ന് ഹൂസ്റ്റണിൽ

ഹൂസ്റ്റണിലെ എൻ

ജി

ഹൂസ്റ്റണിൽ നിന്നും ന്യൂയോർക്കിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി നാളെ യു എൻ

ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിലും പങ്കെടുക്കും

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇരു സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നക്സുജി ഭീഷണി നേരിടുന്ന മേഖലകളിൽ പ്രത്യേക സുരക്ഷാസംവിധ്മുനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണൂർ അറി്യിച്ചു

നാമനിർദ്ദേശ പത്രിക സമ്മർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ നാലാണ്

വിജ്ഞാന രംഗത്ത് രാജ്യത്തെ ഉന്നത ശക്തയാക്കി മാറ്റാനാണ് ദേശീയ കരട് വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു യുവാക്കളുടെ ഭാവി ലക്ഷ്യമിട്ട് മൂന്ന് ദശകങ്ങളായി ആലോചിക്കുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്നും അദ്ദേഹം പറഞ്ഞു

ഓർബിറ്ററും എട്ട് അനുബന്ധ ഉപകരണങ്ങളും ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യക്ഷമമായി പ്രവർത്തനം നടത്തുന്നു ദൌത്യത്തിന്റെ ഭാഗമായ വിക്രവുമായുള്ള വാർത്താവിനിമയബന്ധം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ദേശീയതലത്തിലുള്ള ഒരു വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തിവരികയാണ്

ഇന്നലെ മണിപ്പൂരിലെ ബിഷ്ണുപൂരിൽ ഭക്ഷ്യ കോർപ്പറേഷന്റെ സംഭരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി

കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന ക്ഷേമ പദ്ധതികൾ യഥാർഥ ഗുണഭോക്താക്കളിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണെന്നും ശ്രീ പാസ്വാൻ പറഞ്ഞു

വിശദാംശങ്ങളുമായി നവനീത

എല്ലാ രാജ്യങ്ങളുമായും ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യ അവസരങ്ങൾ കണ്ടെത്തുകയാണ്

എ

യുമായി അടുത്ത ബന്ധം നിലനിർത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീ പിയൂഷ് ഗോയൽ അഭിനന്ദിച്ചു ഇന്ത്യയെ അഞ്ച് ട്രില്യൺ യു

ഡോളറിന്റെ വളർച്ചയുള്ള സാമ്പത്തിക ശക്തിയാക്കി മാറ്റാനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങൾക്ക് നിക്ഷേപകർ പിന്തുണ നൽകണക്കുള്ള നികുതിയിളവുകളിലൂടെ പ്രധാനമന്ത്രിയും ധനമന്ത്രി നിർമ്മല്ലൂസിതാരാമനും ആ ലക്ഷ്യം നേടാനുള്ള പ്രഖ്യാപനങ്ങളാണ് നട്ടത്തിയ്തെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

ന്യൂസ് ഡസ്ക് ആകാശവാണി

കഴിഞ്ഞ മൂന്നു ദിവസങ്ങളിലായി തുടരുന്ന മഴയും അണക്കെട്ടുകളിൽ നിന്നൊഴുകിയെത്തുന്ന വെള്ളവും സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കുകയാണ് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണെന്നും സംസ്ഥാനത്തെ പ്രധാന നദികളെല്ലാം അപകടകരമാം വിധം കരകവിഞ്ഞൊഴുകുകയാണെന്നും ആകാശവാണി പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു

ഫൈനലിൽ ഇറാൻ താരം ഹസ്സൻ യസ്ദാനിയാണ് ദീപകിന്റെ എതിരാളി ദീപകിന്റെ ആദ്യലോക ചാമ്പ്യൻഷിപ്പാണിത് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സുഷീൽ കുമാറിനുശേഷം രണ്ടാമത്തെ ഇന്ത്യൻ താരമാകും ദീപക് പുനിയ

ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചിരുന്നു

സോയ അക്തർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ രൺവീർ സിംഗും ആലിയ ഭട്ടുമാണ് പ്രധാന കഥാപാത്രങ്ങൾ മുംബൈ നഗരത്തിലെ ഭിക്ഷാടകരുടെ യഥാർഥ ജീവിതം പകർത്തിയ സിനിമയാണിത്

നിശബ്ദ പ്രചാരണ ദിവസമായ ഇന്ന് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ മൂന്നു മുന്നണി സ്ഥാനാർത്ഥികളും ശ്രമിക്കും യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥികളടക്കം പതിമൂന്ന്പേരാണ് പാലായിൽ മൽസര രംഗത്തുള്ളത്

കേരള ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയാണ് അദ്ദേഹം